സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു

ആദ്യഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുളള വിജ്ഞാപനം പുറപ്പെടുവിച്ചു

പ്രകടന പത്രിക സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതിയ മാനദണ്ഡങ്ങൾപുറത്തിറക്കി

ലോക്സഭാ തെര്യ്ക്ക്ക് ടുപ്പിൽ ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് കോൺഗ്ര്സ് സ്ഥാനാർത്ഥി ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാനെന്ന് സൂചന വയനാട് സീറ്റിൽ തർക്കം തുടരുന്നു

മലപ്പുറത്തെ വെസ്റ്റ് നൈൽ പനിബാധ സംബന്ധിച്ച് ആശങ്ക വേണ്ടെന്ന് ആരോഗ്യമന്ത്രി

അട്ടപ്പാടി വനമേഖലയിൽ കാട്ടുതീയിൽ വൻനാശം തീയണയ്ക്കാനുളള ശ്രമങ്ങൾ തുടരുന്നു

സംസ്ക്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ പനാജിയിലെ മിരാമർ കടൽത്തീരത്ത് നടന്നു ഇന്നലെ വൈകുന്നേരത്തോടെ പനാജിയിലെ വസതിയിലായിരുന്നു പരീക്കറിന്റെ അന്തൃം ഇന്ന് രാവിലെ ഒൻപതരയോടെ പഞ്ചിമിലെ ബിജെപി ആസ്ഥാനത്ത് എത്തിച്ച മൃതദേഹം അവിടെ പൊതുദർശനത്തിന് വച്ചു

പുതിയ മുഖ്യമന്ത്രിയുടെ സ്ത്യപ്രതിജ്ഞ ഉടൻ നടക്കുമെന്ന് ബി ജെ പി സംസ്ഥാന അദ്ധ്യക്ഷൻ വിനയ് ടെൻഡുൽക്കർ അറിയിച്ചതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം തങ്ങൾ ഗവർണർ മൃദുല സിൻഹയെ കണ്ടതായും ഗവൺമെന്റ് രൂപീകരിക്കാനുളള അവകാശവാദം ഉന്നയിച്ചതായും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു

തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾക്ക് വിധേയമായാണ് പുതിയ നിർദ്ദേശങ്ങൾ രാഷ്ട്രീയ കക്ഷ്ട്രികൾ പ്രകടന പത്രിക പുറത്തിറക്കിയാലുടൻ ഒരു കോപ്പി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓ ഫീസർക്ക് നൽകണമെന്നും തിര്ഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾ ക്ക് വിരുദ്ധമായ പരാമർശങ്ങൾ പ്രതികയിലില്ലെന്ന് സാക്ഷ്യപ ത്രം ലഭ്യമാക്കണമെന്നും ന്റിർദ്ദേശത്തിൽ പറയുന്നു ഭരണഘ ടനയുടെ ആദർശങ്ങൾക്കൂം തത്വങ്ങൾക്കും വിരുദ്ധമായ കാ ര്യങ്ങൾ പത്രികയിൽ ഉൾപ്പെടുത്തരുത്

തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം രാഷ് ട്രീയകക്ഷികളെയും വരണാധികാരികളെയും അറിയിക്കുമെ ന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ടീക്കാറാം മീണ പറഞ്ഞു

സമൂഹ മാധ്യമമായ ഫെയ്സ് ബുക്കിലൂടെ ശ്രീ അടൂർ പ്രകാശ് തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്

എന്നാൽ വയനാട് സീറ്റിനെ ചൊല്ലിയുള്ള തർക്കം തുടരുകയാണ് വിഷയത്തിൽ പരിഹാരം കാണാൻ കോൺഗ്രസ് നേതാക്കളായ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവരുമായി കേന്ദ്ര നേതൃത്വം ഡൽഹിയിൽ ചർച്ച നടത്തി തർക്കം തുടരുന്നതിനാൽ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാന്റിന് വിടാനാണ് സാധ്യത വടകരയിൽ തീരുമാനമായിട്ടില്ല

മലപ്പുറം ജില്ലയിലെ എ

നഗറിലെയും കുട്ടിയുടെ മാതാവിന്റെ നാടായ വെന്നിയൂരിലെയും വീടുകളിലും പരിസരങ്ങളിലും ആരോഗൃസംഘം പരിശോധന നടത്തിയിരുന്നു രോഗം പരത്തുന്ന കൃുലെക്സ് വിഭാഗത്തിൽപെട്ട കൊതുകുകൾ വെന്നിയൂരിലാണ് കൂടുതലെന്ന് സംഘം പറഞ്ഞു രണ്ട് പ്രദേശത്തുനിന്നും കൊതുകുകളെ ശേഖരിച്ച് ആലപ്പുഴയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പരിശോധനയ്ക്കയച്ചു പക്ഷികളുടെ സാംപിളുകളും ശേഖരിച്ചിട്ടുണ്ട് ഇവ പരിശോധനയ്ക്കായി ഹരിയാനയിലെ ഹിസാറിലേക്ക് അയക്കും വൈറസ് മൂലമുണ്ടാകുന്ന പകർച്ചവ്യാധിയാണു വെസ്റ്റ് നൈൽ

പനി റിപ്പോർട്ട് ചെയ്ത മലപ്പുറം മേഖലയിൽ പ്രതിരോധ പ്രവർത്തന്ങൾ മന്ത്രി ആകാശവാണിയോട് പറഞ്ഞു

അനധികൃത പാർക്കിംഗും വഴിവാണിഭവും കാരണം ചാലയിലെ കച്ചവട സ്ഥാപനങ്ങൾ പ്രതിസന്ധിയിലാണെന്ന് പരാതിപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചാല മെയിൻ യൂണിറ്റ് നൽകിയ പരാതിയിലാണ് ഉത്തരവ് കമ്മീഷൻ തിരു വനന്തപുരം നഗരസഭാ സെക്രട്ടറിയിൽ നിന്നും റിപ്പോർട്ട് വാങ്ങി

ഒരാഴ്ചയായി പടരുന്ന തീയിൽ മല്ലീശ്വരൻമുടിയും പരിസ്ഥിതി പ്രവർത്തകരാൽ സൃഷ്ടിക്കപ്പെട്ട കൃഷ്ണവനവും പൂർണമായും കത്തി നശിച്ചു

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്

പത്മകുമാർ നിർമ്മാണത്തിനായി ചില മർങ്ങളുടെ ചില്ലകൾ മുറിക്കേണ്ടി വരുമെന്നതാണ് വകുപ്പ് പ്രറയുന്ന തടസ്സം

ചൂട് ഡാമിലെ ജലനിരപ്പിനെ ബാധിച്ചതോടെ വൈദ്യുത ഉപയോഗത്തിൽ മിത്തും പാലിക്കുന്നത് സ്വീകാര്യമെന്ന് കെ

കെ എസ് ഇ ബി പബ്ലിക് റിലേഷൻസ് ഓഫീസർ രാം മഹേഷ് ആകാശവാണിയോട്

ജില്ലയിലെ എല്ലാ റേഞ്ച് ഓഫീസുകളിലും മൊബൈൽ പട്രോൾ യൂണിറ്റ് ആരംഭിച്ചു